നാലാം വൃവസായ വിപ്തവത്തിന് ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂലധനത്തേക്കാൾ പ്രധാനം കഴിവെന്നും പ്രധാനമന്ത്രി

മനുഷ്യത്യമുള്ള ബില്ലെന്ന് കേന്ദ്രമന്ത്രി മേനകഗാന്ധി

എച്ച് വൺ ബി വിസക്ക് അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സിരാജ്

ധീര ജവാന്മാരുടെ സ്മരണകൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ ആദരാഞ്ജലികൾ

ര ് ഇന്തൃക്കാർ ഉൾപ്പെടെ ആറു പേർക്ക് മഗ്സസെ പുരസ്കാരം

ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വിലക്ക് തുടരണമെന്ന് പന്തളം രാജകുടുംബം സൂപ്രീം കോടതിയിൽ ഹർജിക്ക് പിന്നിൽ ക്ഷേത്ര യശസ്സ് തകർക്കാനുളള ശ്രമമെന്നും രാജകുടുംബം

ആധുനിക ലോകത്ത് മൂലധനത്തേക്കാൾ കഴിവിനാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം പറഞ്ഞു

ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന പത്താമത് ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിക്കുയായിരുന്നു അദ്ദേഹം

സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ സാങ്കേതിക വിദ്യാഭ്യാസത്തിലൂടെ ശാക്തീകരിക്കലാണ് തന്റെ ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലന്വേഷകരെ തൊഴിൽ ദാതാക്കളാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്

ഇന്ത്യയെകൂടാതെ ബ്രസീൽ റഷ്യ ചൈന ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു ് മൂന്ന് ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്നലെയാണ് തുടക്കമായത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരുമായി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും

മനുഷ്യക്കടത്ത് നിയന്ത്രണം കടത്തപ്പെട്ടവരുടെ സുരക്ഷ പുനരധിവാസം എന്നിവ ലക്ഷ്യമിടുന്ന ബിൽ മനുഷ്യക്കടത്ത് സംബന്ധിച്ച കേസുകൾ അന്വേഷിക്കുന്നതിന്റ് ദേശീയ മനുഷ്യക്കടത്ത് നിരോധന ബ്യൂറോ രൂപവത്ക്കരിക്കാറും ശുപാർശ ചെയ്യുന്നു ജില്ലാതലത്തിൽ ആന്റി ട്രാഫിക്ടിങ്ങ് യൂണിറ്റുകൾ ആരംഭിക്കാനും ബില്ലിൽ വ്യവസ്ഥയു ്

ബിൽ നിലവിൽ വരുന്നതോടെ മ്നുഷ്യക്കടത്ത് ജാമ്യമില്ലാ കുറ്റമായി മാറും എന്നാൽ കടത്തിനിരയാകുന്നവർക്ക് കുറഞ്ഞ പരിഗണനയാണ് ബില്ലിൽ ഉള്ളതെന്ന് കോൺഗ്രസ് നേതാവ് ശശിതരൂർ എം പി പറഞ്ഞു

ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ ആരോപണം അടിസ്ഥാന രഹിതമാണെന്നും മന്ത്രി രാജ്യസഭയെ അറിയിച്ചു

പ്രൊഫഷണലുകൾക്കും വിദഗ്ദ്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന വിസയാണ് എച്ച് വൺ ബി വിസ

രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കുമുള്ളവർ ധീര ജവാന്മാരുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജ്ലികൾ അർപ്പിച്ചു

കുടുതൽ വിവരങ്ങളുമായി സുവർണ്ണ വോയിസ് കാർഗിൽ വിജയദിവസമായ ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ കാർഗിൽ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാഞ്ജലിയർപ്പിച്ചു

നമ്മുടെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയേയും ഓരോ ഭാരതീയനും അഭിമാനത്തോടെ സ്മരിക്കുന്നൂവെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ഓപ്പറേഷൻ വിജയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനുവേ ി ജീവത്യാഗം ചെയ്ത എല്പാവർക്കും രാജ്യമൊന്നടങ്കം ശ്രദ്ധാഞ്ജലിയർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു യുദ്ധസമയത്ത് രാജൃത്തെ നയിച്ച മുൻ പ്രധാനമന്ത്രി അടൽബിഹാരി വാജ്പേയുടെ നേതൃത്വത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ് എന്നിവരും കാർഗിൽ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു നിയതന്ത്രമരേഖയിലായാലും അതിർത്തിരേഖയിലായാലും ഏത് അട്ടിയ്ത്തിരഘട്ടവും നേരിടാൻ ഇന്ത്യൻ സൈനൃം സന്നദ്ധമാണെന്ന് വട്ടക്കൻ സൈനിക കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിങ് പറഞ്ഞു ദ്രാസ് യുദ്ധസ്മാരകത്തിൽ മാധ്യമിങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകരായ ഡോ

നോബെൽ സമ്മാനത്തിന്റെ ഏഷ്യൻ പതിപ്പായിട്ടാണ് മാഗ്സസെ പുരസ്കാരം കണക്കാക്കപ്പെടുന്നത് തെരുവിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളായ അഗതികൾക്ക് നൽകുന്ന സംരക്ഷണത്തിനും സേവനത്തിനുമാണ് വാട്ട് വാനിയ്ക്ക് പുരസ്കാരം നൽകി ആദരിക്കുന്നതെന്ന് രമൺ മാഗ്സസെ ഫൌഡേഷൻ അറിയിച്ചു ഉത്തരേന്തൃയിലെ വിദുരസ്ഥ മേഖലകളിൽ യുവാക്കളുടെ ജീവത നിലവാരവും സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ രീതിയിൽ കൊ ുവന്ന മാറ്റങ്ങൾക്കാണ് സോനം വാങ്ചുക്കിന് പുരസ്കാരം നൽകുന്നത് കംബോഡിയ ഈസ്റ്റ് തിമോർ ഫിലിപ്പീൻസ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പുരസ്കാരം ലഭിച്ച മറ്റുള്ളവർ

പ്രകൃതിക്ഷോഭത്തെപ്പറ്റി ല്യോക്ട്സഭയിൽ ഇന്നലെ നടന്ന ചർച്ചക്ക് മറുപടി പറയവേ ആഭ്യന്ത്ര സഹമന്ത്രി കിരൺ റിജിജ്ജു അറിയിച്ചതാണ് ഇക്കാര്യര്

വെള്ളപ്പൊക്ക ബാധിതമായി വിജ്ഞാപനം ചെയ്യപ്പെടുന്ന ജില്ലകളിലെ കർഷകർക്ക് വിള ഇൻഷൂറൻസ് ലഭിക്കാൻ അർഹതയു ്്

തലമുറകളായി തുടരുന്ന ക്ഷേത്ര ആചാരങ്ങളിൽ കോടതി ഇടപെടരുതെന്നും രാജകുടുംബം അഭ്യർത്ഥിച്ചു സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ഹർജിക്കു പിന്നിൽ ക്ഷേത്രത്തിന്റെ യശസ് തകർക്കാനുള്ള ശ്രമമാണെന്നും രാജകുടുംബത്തിനു വേ ി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ

രാധാകൃഷ്ണൻ വാദിച്ചു

പാർലമെന്റിന്റെ ശൂന്യവേളയിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നിയമത്തിലെ ഒരു കുത്തോ കോമയോ പോലും മാറ്റാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലെന്നും പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളുടെ ഉന്നമനമാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു

സംഭവത്തെക്കുറിച്ച് നിഷ്പക്ഷ അന്വേഷണം നടത്താനാണ് കേസ് സി ബി ഐക്ക് കൈമാറിയതെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അറിയിച്ചു